ലോക ജലദിനത്തോടനുബന്ധിച്ചാണ് ക്യാച്ച് ദ റെയ്ൻ പ്രചാരണം ആരംഭിക്കുന്നത്

ജെ

സി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലശക്തി അഭിയാന് ഇന്ന് തുടക്കം കുറിക്കും

മഴവെള്ളം സംഭരിക്കുക എവിടെ പെയ്യുമ്പോഴും എപ്പോൾ പെയ്യുമ്പോഴും എന്നതാണ് പ്രചാരണ പ്രമേയം

ജനപങ്കാളിത്തത്തോടെ താഴെത്തട്ടിൽ ജലസംരക്ഷണത്തിനായി ജൻ ആന്തോളനും തുടക്കമാകും മഴവെള്ളത്തിന്റെ ശരിയായ സംഭരണം ഉറപ്പുവരുത്തുന്നതിന് കാലാവസ്ഥക്ക് അനുയോജ്യമായ മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുന്നതും പ്രചാരണത്തിന്റെ ഭാഗമാകും ജലവും ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലൊഴികെ സംസ്ഥാനങ്ങളിൽ ഗ്രാമസഭകൾ വിളിച്ച് ചേർക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജലശക്തി മന്ത്രിയും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരും കെൻ ബെത് വ നദികളെ സംയോജിപ്പിക്കുന്നതിന് ചരിത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവെയ്ക്കും നദികളെ സംയോജിപ്പിക്കുക എന്ന ദേശീയ കാഴ്ചപ്പാടിലെ ആദ്യ പദ്ധതിയാണിത് ദ്വോധൻ അണക്കെട്ടും രണ്ട് നദികളെയും ബന്ധിപ്പിക്കുന്ന കനാലും നിർമ്മിച്ച് കെൻ നദിയിലെ വെള്ളം ബെത് വ നദിയിലേക്ക് ഒഴുക്കുന്നതാണ് പദ്ധതി

ആഗോള ജലപ്രതിസന്ധിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് യു

ദേദ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സരചിത്രം ഇന്ന് വ്യക്തമാകും

പിൻവലിക്കൽ സമയം അവസാനിച്ചാലുടൻ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം അനുവദിക്കും ദ്ദേ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ തലശേരി ഗുരുവായൂർ മണ്ഡലങ്ങളിലെ ബി

പി സ്ഥാനാർത്ഥികൾ നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഇന്നലെ പ്രത്യേക സിറ്റിംഗിൽ ഹർജികൾ പരിഗണിച്ച ജസ്റ്റിസ് എൻ നഗരേഷ് വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടിയാണ് ഹർജികൾ ഇന്നത്തേക്ക് മാറ്റിയത്

ഫലപ്രഖ്യാപനത്തിന് മുമ്പ് കോടതി ഇടപെട്ടാൽ നീതിപൂർവകമായ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് കമ്മീഷൻ പറഞ്ഞു ദേദ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങാതെ ജില്ലാ കലക്ടർമാരുടെ യോഗം വിളിച്ച തദ്ദേശ ഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വിശദീകരണം തേടി ക്ലീൻ കേരള കമ്പനി വഴി മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ സ്ഥലമെടുപ്പ് പുരോഗതി സംബന്ധിച്ച യോഗം നാളെ ഓൺലൈനായി ചേരുന്നതിന് തദ്ദേശ സ്വയംഭരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി കലക്ടർമാർക്ക് കത്തയച്ചിരുന്നു ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കണ്ടാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടാനും റിപ്പോർട്ട് നൽകാനും ചീഫ് സെക്രട്ടറിക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് പാലിക്കേണ്ട മാർഗ നിർദ്ദേശങ്ങൾ വിശദമായി മന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടറിമാർക്കും വകുപ്പ് മേധാവികൾക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു യോഗം വിളിക്കേണ്ടതോ നിർദ്ദേശം നൽകേണ്ടതോ ആയ അടിയന്തര സാഹചര്യമാണെങ്കിൽ അതിന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുമതി വാങ്ങേണ്ടതുണ്ടെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കി ദേദ ഒന്നിൽ കൂടുതൽ വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കൈവശം വെയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ എച്ച് ദിനേശൻ അറിയിച്ചു മുമ്പ് താമസിച്ചിരുന്ന മേൽവിലാസത്തിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് സ്വീകരിച്ച കാര്യം മറച്ചുവെച്ച് പുതിയ മേൽവിലാസത്തിൽ വീണ്ടും കാർഡ് വാങ്ങിയതായി കണ്ടെത്തിയാൽ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു

എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോട്ടയം ജില്ലയിലെത്തും പാലാ വൈക്കം പാമ്പാടി ഏറ്റുമാനൂർ കോട്ടയം എന്നിവിടങ്ങളിൽ പ്രചാരണ യോഗങ്ങളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും

എറണാകുളം കോട്ടയം ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും ദേദ കാട്ടാക്കട മണ്ഡലം എൻ

എ സ്ഥാനാർഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് യുവമോർച്ച സംഘടിപ്പിച്ച യുവസംഗമം ധനകാര്യ സഹമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലം അഴിമതിക്കെതിരെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

ദ്ദേ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ ഇന്ന് കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് എൻ

എയുടെ പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്പെഷൽ ജനറൽ ഒബ്സർവർ രാമകൃഷ്ണറാവുവിന്റെ അദ്ധ്യക്ഷതയിൽ കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്തു നീതിപൂർവ്വകമായ വോട്ടെടുപ്പ് ഉറപ്പു വരുത്തുന്നതിനാവശ്യമായ നടപടി സൂക്ഷ്മതയോടെ നിർവ്വഹിക്കുന്നതിന് അദ്ദേഹം നിർദ്ദേശം നൽകി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ സാംബശിവ റാവു ജില്ലയിലെ ഒരുക്കങ്ങൾ വിശദീകരിച്ചു

സി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി കൊൽക്കത്തയിൽ നടന്ന ലീഗിലെ അവസാന കളിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഗോകുലം മുഹമ്മദൻസിനെ കീഴടക്കിയത് ഇന്നലെ നടന്ന ട്രാവു എഫ്

ശനിയാഴ്ച ട്രാവുവിനെ തോൽപ്പിക്കാനായാൽ ഗോകുലത്തിന് കിരീടം നേടാനാകും ദേദ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരക്ക് നാളെ പൂനെയിൽ തുടക്കം

അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ചയാണ് ഓം ബിർളക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ദേദ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ഭരണകൂടം കർശന നടപടി സ്വീകരിക്കും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രചാരണ പരിപാടികളിലും വിവാഹങ്ങൾ ഉൾപ്പെടെ മറ്റു പൊതുപരിപാടികളിലും കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പു വരുത്താനും ലംഘിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകി ദര വയനാട് ജില്ലയിൽ മാസ് വാക്സിനേഷൻ ക്യാംപയിന് ഇന്ന് തുടക്കമാകും

വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്ത് വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു ദേദ ശക്തമായ തിരമാലകളെ തടഞ്ഞ് കടൽക്ഷോഭത്തിൽ നിന്ന് തീരത്തെ സംരക്ഷിക്കുന്ന പുലിമുട്ടുകൾ ബലപ്പെടുത്തുന്ന ജോലി വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് പുരോഗമിക്കുന്നു

പദ്ധതിയുടെ ഭാഗമായി ആദ്യം വലിയ കരിങ്കല്ലുകൾ നിക്ഷേപിച്ച ശേഷം കൂറ്റൻ ടെട്രാപാഡുകൾ നിക്ഷേപിക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ വകുപ്പുകളിലെ അവശ്യ സർവീസ് ജീവനക്കാർക്ക് തപാൽ വോട്ട് ചെയ്യുന്നതിനായി കോഴിക്കോട് ജില്ലയിലെ അതത് നിയോജക മണ്ഡലം പരിധിയിൽപ്പെട്ട പോളിംഗ് സ്റ്റേഷനിൽ സൌകര്യമൊരുക്കി

ദര സമ്മതിദാന വിനിയോഗത്തിന്റെ പ്രാധാന്യം വോട്ടർമാരിലെത്തിക്കുന്നതിന് അടിമാലി മൂന്നാർ മേഖലകളിൽ സ്വീപ്പിന്റെ നേതൃത്വത്തിൽ വോട്ടുവണ്ടി യാത്ര നടത്തി വോട്ടിംഗുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്ന ലക്ഷ്യംകൂടി മുന്നിൽ കണ്ടാണ് റോബോട്ടുകളടക്കം അത്യാധുനിക സംവിധാനങ്ങളുമായി വോട്ടുവണ്ടി യാത്ര സംഘടിപ്പിച്ചത്